ചൈനയ്ക്ക് ഇന്തൃയുടെ മുന്നറിയിപ്പ് ചൈനീസ് ആപ്പുകൾ നിരോധിക്കാനുള്ള തീരുമാനം ഡിജിറ്റൽ ആക്രമണമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്

പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന ഭാരത് വന്ദേ ദൌതൃത്തിന്റെ നാലാം ഘട്ടം നാളെ മുതൽ

പശ്ചിമബംഗാളിലെ ബിജെപി പ്രവർത്തകരെ വെർച്ചൽ റാലിയിലൂടെ അഭിസംബോധന ചെയ്യുക്കുയായിരുന്നു അദ്ദേഹം ബാലക്കോട്ട് ആക്രമണത്തിന്

പശ്ചാത്തലത്തിലുള്ള മാർഗരേഖകൾ പാലിച്ച് പ്രവർത്തിക്കാനും ഇരുപക്ഷവും തീരുമാനിച്ചു

കോവിഡ് പ്രതിരോധം നിയന്ത്രണം എന്നീ കാര്യങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള സർക്കാരിന്റെ പ്രവർത്തനം ആശാവഹമായ ഫലം നൽകുന്നതായി ആരോഗൃമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

മാനവ വിഭവശേഷി വികസന മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്കും ആരോഗൃമന്ത്രി ഡോ ഹർഷ് വർധനും സംയുക്തമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഹാക്കത്തോണിനു തുടക്കമിട്ടത് വിദ്യാർത്ഥികൾ അക്കാദമിഷ്യന്മാർ ഗവേഷകർ പ്രൊഫഷണലുകൾ എന്നിവരോട് ഹാക്കത്തോണിൽ പങ്കെടുക്കാൻ മന്ത്രിമാർ ആഹ്വാനം ചെയ്തു കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സി

ഓൾ ഇന്തൃ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ

കണ്ണൂർ ജില്ലയിലെ പടിയൂർ കീഴല്ലൂർ പാലക്കാട് ജില്ലയിലെ ആനക്കര എന്നിവയെ കണ്ടൈയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി

ന്യൂസ് ഡെസ് ആകാശവാണി

റഷ്യയിലെ ഭരണഘടനാ ഭേദഗതി വിജയകരമായി പൂർത്തിയക്കിതിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനമറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ രാജൻ

കോവ്യസ്സ് മഹാമാഹരി നേരിടുന്നതിൽ ഇരു രാജ്യങ്ങളും സ്വീകരിച്ചു

കോവിഡിനു ശേഷം ലോകം നേരിടുന്ന വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പ്രാധാന്യവും ഇരു നേതാക്കളും പങ്കുവെച്ചു ഈ വർഷം അവസാനം ഇന്ത്യയിൽ വച്ചു നടക്കുന്ന വാർഷിക ഉച്ചകോടിയെ മുൻനിർത്തി ഉഭയകക്ഷി ബന്ധവും കൂടിയാലോചനകളും നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നേതാക്കൾ ആശയവിനിമയം നടത്തി ടെലിഫോണിലൂടെ നടന്ന സഭാഷണത്തിൽ ഇന്ത്യുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് പശ്ചാത്തലത്തിലാണ് സമിതിയെ നിയോഗിച്ചതെന്ന് മാനവ വിഭവശേഷി മന്ത്രി രമേഷ് പൊക്രിയാൽ അറിയിച്ചു